പ്രചാരണ ചൂടിലേക്ക്

ഹർജിയിൽ ഹൈക്കോട്ടതി പ്പിധി ഇന്ന്

കോവിഡ് പ്രതിരോധ് വാക്സിൻ വിതരണം നാളെ മുതൽ

വിശദാംശങ്ങളും ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചു

സംസ്ഥാനങ്ങൾ ജില്ലാതല കർമ്മപദ്ധതിക്ക് രൂപം നൽകണമെന്ന് കേന്ദ്രം

മുൻനിര പാർട്ടികളുടെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിനായി കേരളത്തിൽ എത്തിയതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലായി

ഡി എ യുടെ താരപ്രചാരകനായി മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേരളത്തിലെത്തും

ഇന്ന് സംസ്ഥാനത്ത് ഏത്തുന്ന ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയുട് ഉത്ത്ർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നാളെ സ്ട്രസ്കാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ പൊതുസമ്മേളനങ്ങളിലും റോഡ് ഷോയിലും പങ്കെടുക്കും

ഡി എഫ് ്തെർഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി എം ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് തൃശ്ശൂരിലെത്തി ചാലക്കുടി മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരുകയാണ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും അവർ പങ്കെടുക്കും

എൽ ഡി എഫ് പ്രചാരണത്തിനായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വൃന്ദ കാരാട്ട് പ്രകാശ് കാരാട്ട് എന്നിവർ യഥാക്രമം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിലാണ് ജില്ലാപരൃടനങ്ങൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്തു പ്രചാരണ തിരക്കിലാണ്

ഡിക്കെതിരായ ക്രൈം ബ്രാഞ്ച് കേസിൽ കേസ് ഡയറിയും വിശദാംശങ്ങളും ആവശ്യപ്പെട്ട് ഇഡി ഹൈകോടതിയെ സമീപിച്ചു

അതേസമയ്ക്ക് ര്ക്രെം ബ്രാഞ്ച് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ഇ ്ഡി ശ്രമിക്കുന്നതെന്നും അന്വേഷണത്തിൽ കാലതാമസം വരുത്തി തെളിവ് ഇല്ലാതാക്കാനാണ് ഇ ഡി യുടെ ശ്രമമെന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു

ഒരു ദിവസം രണ്ടര ലക്ഷം പേർക്ക് വീതം വാക്സിൻ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ അധിക കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്

വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് വാക്സിൻ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്

പദ്ധതിയുടെ കീഴിൽ സംസ്ഥാനങ്ങൾ ദ്രുത കർമ്മ കേന്ദ്രങ്ങൾ രൂപീകരിക്കണം

ഓരോ കേസിന്റെയും രൂപരേഖ മേഖലാടിസ്ഥാനത്തിലുള്ള അവലോകനം വിലയിരുത്തൂൽ കണ്ടെയിൻമെന്റ് മേഖലകളുടെ രൂപീകരണം എന്നിവയാണ് ഇതിനോടൊപ്പമുള്ള മറ്റ് പ്രവർത്തനങ്ങൾ

ഇത് ബാധകമായ വ്യാപാരികൾ നികുതി ബാധ്യതയുള്ള ചരക്കുകൾക്കും സേവനങ്ങൾക്കും കൂടാതെ വ്യാപാരി നൽകുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ടുകൾക്കും ഇ ഇൻവോയ്സിംഗ് നടത്തണം

കോട്ടയം കോട്ടയം ജില്ലയിൽ ഇനിയുള്ള രണ്ട് ദിവസങ്ങളിൽ പ്രചരണ കോലാഹലങ്ങൾക്ക് അവധി നൽകി പരമാവധി വോട്ടർമാരെ വീടുകളിൽ ചെന്ന് കാണാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ ക്രൈസ്തവർ പെസഹയും ദുഃഖവെള്ളിയും ആചരിക്കുന്ന ദിനങ്ങളായതിനാലാണ് ശബ്ദായമാനമായ പ്രചാരണങ്ങൾക്ക് അവധി നൽക്കുന്നത് പാലാ നഗരസഭ പാലാ നഗരസഭയിൽ ഭരണപക്ഷ കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി സ്റ്റാൻഡിങ് കമ്മിറ്റിയെചൊല്ലിയുള്ള തർക്കമാണ് അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചത്

ജെ

യുും തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതായി വരികയാണ്ണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പല മണ്ഡലങ്ങളില്ലൂം ്ഇരുവരും ധാരണയിലാ ണെന്നും അദ്ദേഹം പറഞ്ഞു പൃയ്യന്നൂരിൽ എൽ

തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സുരേന്ദ്രൻ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും സ്പീക്കർക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങ്ർക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് ബിജെപി അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർക്കാരിനെതിരെ ഉയരുന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

മൂന്ന് മുന്നണികളുടെയും പ്രമുഖരായ പ്രതിനിധികൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കും സ്വീപ് പത്തനംതിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ സ്വീപ് ബോധവത്കരണ പരിപാടിയുടെ ഭാഗമായി സ്വീപിന്റെ ഭാഗൃചിഹ്നമായ മിട്ടു എന്ന മലമുഴക്കി വേഴാമ്പൽ യാത്ര തുടങ്ങി പോസ്റ്റൽ ബാലറ്റ് കോഴിക്കോട് ജില്ലയിൽ തെരൂർണ്ഞ്ടുപ്പ് ഡ്യൂട്ടിയ്ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗ്യസ്ഫ്രിൽ ഇതുവരെ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ സമർപ്പിക്കാർ സ്റ്റ്സാധിക്കാത്തവർക്ക് അപേക്ഷാഫോറം എല്ലാ വില്ലേജ്താലുക്ക് ഓഫീസുകളിൽ നിന്നും ലഭിക്കുമെന്ന് കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അറിയിച്ചു

ഒന്നാം പ്രതി ബിജു രണ്ടാം പ്രതി ഷംസുദ്ദീൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്